നൽകാൻ കേന്ദ്രം പദ്ധതി കൊണ്ടുവരും

എസ് എൻ എൽ മേക്ക് ഇൻ ഇന്ത്യ പദ്ധതി പ്രയോജനപ്പെടുത്തും

സമർപ്പിക്കപ്പെട്ട ക്ലപ്പൂർതു താൽപ്പര്യ ഹർജികൾ ഹൈക്കോടതി തള്ളി

എൻ

ഇതിന്റെ ഭാഗമായി ഫോർ ജി നെറ്റ്വർക്ക് അപ്ഗ്രഡേഷൻ കരാറുകൾ ബി എസ് എൻ

പുതിയ കരാർ ഉടൻ വിളിക്കും

എസ് എൻ എൽ വൂടക്കുംകിഴക്കൻ പടിഞ്ഞാറൻ തെക്കൻ മേഖലകളിലും ഡൽഹീയിലും മുംബൈയിലും എം

ഇന്ത്യ ചൈന സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിലും പ്രധാനമന്ത്രിയുടെ ആത്മനിർഭർ ഭാരത് പദ്ധതി നിർദ്ദേശമനുസരിച്ചുമാണ് കരാർ റദ്ദാക്കിയത്

കേന്ദ്രമന്ത്രി രാംവിലാസ് പാസ്വാൻ ന്യൂഡൽഹിയിൽ അറിയിച്ചതാണ് ഇക്കാര്യം

മുപ്പതിനായിരം കോടി രൂപയുടെ സ്വകാര്യ നിക്ഷേപം പദ്ധതിയ്ക്കായി ഒരുങ്ങുന്നുവെന്നാണ് കണക്കാക്കുന്നത് ഇന്ത്യൻ റെയിൽവേയിൽ ട്രെയിനുകൾ ഓടിക്കുന്നതിന് സ്വകാര്യ നിക്ഷേപം ആദ്യമായാണ് അനുവദിക്കുന്നത്

എന്നാൽ ഉപ്പ്യോഗിച്ച വൈദ്യുതിക്കാണ് ബിൽ നൽകിയ്ട്രത്തെന്ന് കെ എസ്

ക്ക് കാക്ക് കാസർകോട് ഇൻട്രോ കാസർകോട് ജില്ലയിൽ രണ്ടു പേർക്ക് സമ്പർക്കത്തിലൂടെ കോവിഡ് സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ ജില്ലയിൽ കൂടുതൽ ജാഗ്രത പാലിക്കുമെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ എ

ആരോഗ്യ പ്രവർത്തകരുടെ സുരക്ഷയും ഉറപ്പുവരുത്തിയിട്ടുണ്ട് വിശദാംശങ്ങളുമായി ആകാശവാണി ജില്ലാ പ്രതിനിധി പി

ഇതോടെ രണ്ട് ആശുപത്രികളിലെയും സ്പ്മ്പിൾ ശേഖരണം പൂർത്തിയായി

ജില്ലയിലെ ഫിഷ് ലാൻഡിങ് സെന്ററുകളിൽ ചില്ലറ മത്സ്യ വിൽപ്പന ഉൾപ്പെടെ നിരോധിച്ചു

കണ്ടെയ്ൻമെന്റ് സോണുകളായിരുന്ന ജില്ലയിലെ പട്ടണക്കാട് പത്താം വാർഡ് ആലപ്പുഴ നഗരസഭയിലെ അമ്പതാം വാർഡ് കാർത്തികപ്പള്ളി ഏഴാം വാർഡ് എന്നിവയെ കണ്ടെയിൻമെന്റ് സോൺ പട്ടികയിൽ നിന്നും ഒഴിവാക്കി

ഇതിൽ ഏറ്ട് ഫേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം പകർന്നത്

കൊട്ടാരക്കര ഉമ്മന്നൂർ പ്രാഥമികാരോഗൃ കേന്ദ്രത്തിന്റെ പരിധിയിൽ വരുന്ന വാളകം മേഴ്സി ഹോസ്പിറ്റൽ ഏറ്റെടുത്താണ് കൊറോണ ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെന്റ് സെന്റർ സജ്ജമാക്കിയത്

ജില്ലയിലെ കോവിഡ് ആശുപത്രിയായ കൊല്ലം സർക്കാർ മെഡിക്കൽ കോളേജിൽ രോഗികളുടെ എണ്ണം ഇരുന്നൂറിനോട് അടുക്കുമ്പോഴാണ് കോറോണ പ്രാഥമിക ചികിത്സാ കേന്ദ്രം പ്രവർത്തനക്ഷമമാകുന്നത്

കോവിഡ് പശ്ചാത്തലത്തിൽ ആഗോളതലത്തിൽ സ്വന്തം രാജ്യത്തിലേക്ക് പൌരന്മാരെ തിരികെ നാട്ടിലെത്തിക്കുന്ന ഏറ്റവും വലിയ പദ്ധതിയാണ് വന്ദേ ഭാരത്

രണ്ട് വിമാനങ്ങൾ അമേരിക്കയിൽ നിന്നാണ് എത്തുക

ഐ

എഫ് കാർക്ക് കൂട്ടത്തോടെ കോവിഡ് രോഗബാധയുണ്ടായ സാഹചര്യത്തെക്കുറിച്ച് പോലീസ് അന്വേഷണം തുടങ്ങി

കേരള കോൺഗ്രസ്സ് അടിത്തറയുള്ള പാർട്ടിയാണെന്ന് എൽ

എഫ് നേതാക്ക്ൾ പറഞ്ഞതിൽ സന്തോഷമുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു അ്തേസമയം ധാരണ പാലിച്ചാൽ ജോസ് കെ മാണിക്ക് യ്യു ഡ്ട്എഫിൽ തിരിച്ചു വരാമെന്ന് പി

ജോസ്ട് വീഭാഗം സ്വാധീനമുള്ള കക്ഷിയാണെന്നും അവർ നില്പ്പാട് ്വ്യക്തമാക്കിയ ശേഷം പ്രതികരിക്കാമെന്നും എൽ

എഫ് കൺവീനർ എ വിജയരാഘവൻ ത്തിരുവ്നന്തപുരത്ത് പറഞ്ഞു

സി ജനറൽ സെക്രട്ടറിയും ഐ

നേതാവുമായിരുന്ന കെ സുരേന്ദ്രന്റെ മരണവുമായി ബന്ധപ്പെട്ട് കണ്ണൂർ ടൌൺ പോലീസ് കേസെടുത്തു കണ്ണൂർ ഡി സി

മോഷണക്കേസ് പ്രതികളായ മൂന്നുപേരും മാലിനൃം പുറത്തുകളയാൻ പോയവഴി രക്ഷപ്പെടാൻ ശ്രമിക്കുകയായിരുന്നു